ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാഫീസ് വർദ്ധി പ്പിച്ചു രംഭട്ടിട്ടുള സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു അതിതീവ്ര മഴയുടെ മുന്ന റിയിപ്പായ റെഡ് അലർട്ട് ഇന്ന് ഒരു ജില്ലയിലുമില്ല എന്നാൽ കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇവിടങ്ങളിൽ ശക്തമോ അതിശക്തമോ ആയ മഴ ഉണ്ടാ യേക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപംപ്രാപിക്കുന്ന ന്യൂനമർദ്ദം മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ബുധനാഴ്ച മുതൽ കനത്ത മഴക്ക് വഴിയൊരുക്കു മെന്ന് സൂചനയുണ്ട് ആദ്യ രണ്ടുദിവസം തെക്കൻ ജില്ലകളിലും മൂന്നും നാലും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലും ശക്തമോ അതിശക്തമോ ആയ മഴക്ക് സാധ്യതയുണ്ടെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറി യിച്ചു

കടൽ പൊതുവെ പ്രക്ഷുബ്ധമായിരിക്കും

തിരുവനന്തപുരം അട്ടപ്പാടി മലപ്പുറം കവളപ്പാറ കോട്ടക്കുന്ന് എന്നിവിടങ്ങ ളിൽ നിന്ന് ആറുമരണം കൂടി സ്ഥിരീകരിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്

വയനാട് മേപ്പാടി പുത്തുമലയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുവേണ്ടി തെരച്ചിൽ തുടരുകയാണ്

സൈന്യവും പൊലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട കവളപ്പാറ ഉരുൾപൊട്ടലിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനും രക്ഷാ പ്രവർത്തനത്തിനും ഗവൺമെന്റ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരി ച്ചതായി മന്ത്രി ഡോക്ടർ കെ

പൊലീസ് റവന്യൂ ഉന്നത ഉദ്യോഗസ്ഥരും എം

എയും സ്ഥലത്ത് കൃാമ്പ് ചെയ്ത് രക്ഷാപ്ര വർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരികയാണെന്ന് കവളപ്പാറയിലെത്തിയ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു

കനത്ത മഴയിൽ തോടിന് കുറുകെയുള്ള പാലംതകർന്നതോടെയാണ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത് രക്ഷാ പ്രവർത്തകർ സ്ഥലത്തെത്തിയെങ്കിലും ക്യാമ്പിലേക്ക് മാറാൻ ഇവർ തയ്യാ റാവുന്നില്ല

ഇന്ന് പുലർച്ചെയാണ് അപകടം

അഞ്ചുതെങ്ങ് സ്വദേശികളായ റോക്കി ബെഞ്ചിനോസ് ലാസർ എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ് മൂന്നുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

ഇവരുടെ മകന്റെ ഭാര്യ നീതുപിന്റെയും ഒന്നരവയസ്സുള്ള മകന്റെയും മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു വെള്ളിയാഴ്ച വൈകീട്ടാണ് വീട് തകർന്ന് മൂന്നുപേരെയും കാണാതായത്

പ്രവേശ്നകവാടത്തിന്റെ കിഴക്കുഭാഗത്ത് പുറത്തേക്കുള്ള രണ്ടാ മത്തെ നിരീക്ഷണകേന്ദ്രത്തിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞത് ഇതേതുടർന്ന് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട ദുരിതാശ്ചാസ ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിന് പ്രത്യേക ആരോഗ്യ കൌൺസലിംഗ് സംഘത്തെ സജ്ജമാ ക്കുമെന്ന് മന്ത്രി കെ

ഇവർക്ക് പിന്തുണ നൽകുന്നതിന് പ്രത്യേക സംഘത്തിന്റെ സേവനം പ്രയോജനപ്പെ ടുത്തും ഡോക്ടർമാർ കൌൺസലർമാർ ഈ രംഗത്തെ പ്രൊഫഷണലു കൾ വളണ്ടിയർമാർ എന്നിവരുടെ സേവനമാണ് ഉപയോഗപ്പെടുത്തുകയെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു

രുട്ടിട്ടിട്ടിട പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് വിവേചനം കാണിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ വർഷം പതിനായിരം കോട്ടിരൂപയുടെ നഷ്ടം സംഭവിച്ച കേരള ത്തിന് മൂവായിരം കോടി മാത്രമാണ് നൽകിയത് പ്രളയത്തെ തുടർന്ന് ബുദ്ധി മുട്ടിലായ സംസ്ഥാനങ്ങളോടുപോലും ബി ജെ പി ഗവൺമെന്റ് രാഷ്ട്രീയ പക്ഷപാതം കാണിക്കുകയാണെന്ന് കോൺഗ്രസ് വക്താവ് ജെയ്വീർ ഷർഗിൽ ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി

യുദ്ധകാലാടിസ്ഥാനത്തിൽ തകരാർ പരിഹരിക്കാൻ ശ്രമം തുട രുകയാണ് വയനാട്ടിലെ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇനിയും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല രുട്ട്ട്ട്ട്ട്ട്ട്ട ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാർ്യങ്ങൾക്കെതിരെ ദുഷ്പ്രചാരണം നട ത്തുന്ന ചില ശക്തികൾ ഇടത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുമുതൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി എ

കാലവർഷ ക്കെടുതിയിൽ ദുരന്തം നേരിട്ടവരും അവരെ സഹായിക്കുന്നവരും ദുഷ് പ്രചാ രണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പാലക്കാട്ട് ആവശ്യ പ്പെട്ടു വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക്കിലെ ദുരിതാശ്ചാസ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

രാവിലെ താമരശേരി കൈതപ്പൊയിലിലെ ദുരിതാശ്ചാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം വയനാട് ജില്ലയിലേക്ക് പോയത്

വയനാട് മണ്ഡലത്തിലുണ്ടായ പ്രകൃതിദുരന്തങ്ങൾക്കിരയായ സാധാരണക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകണമെന്ന് അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് ആവശ്യപ്പെട്ടു

പി എന്ന നിലയിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും മണ്ഡലത്തിൽ ലഭ്യമാക്കുമെന്നും രാഹുൽഗാന്ധി ഉറപ്പുനൽകി

കനത്ത മഴയിൽ കോഴി ക്കോട് ഫറോക്ക് പാലത്തിൽ അടിഞ്ഞ മരച്ചില്ലകൾ നീക്കം ചെയ്തശേഷം ഗതാഗതം പുനസ്ഥാപിക്കാനാവുമെന്ന് രാവിലെ പാത പരിശോധിച്ച ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു

കേരള മഹാത്മാഗാന്ധി സർവകലാശാലകളും നാളെ നടത്താനി രുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു മഹാത്മാഗാന്ധി സർവകലാശാലക്ക് കീഴിലെ കോളജുകളിൽ മറ്റന്നാൾ നടത്താനിരുന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെ ടുപ്പും മാറ്റി

ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം നടന്നു നമസ്കാരത്തിന് നേതൃത്വം നൽകിയ പുരോഹിതർ ദുരിതബാധിതരെ സഹായിക്കണമെന്ന സന്ദേശം നൽകി

തിരു വനന്തപുരത്ത് ചന്ദ്രശേഖരൻനായർ സ്റ്റേഡിയത്തിൽ ഈദ്ഗാഹിന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി പ്രതികൂല കാലാവ സ്ഥയെ തുടർന്ന് കോഴിക്കോട് നഗരത്തിൽ ഈദ്ഗാഹുകൾ നടന്നില്ല

കോഴിക്കോട് മാവൂർ റോഡ് മർക്കസ് പള്ളിയിൽ സലീം സഖാഫി കൈമ്പാലം നേതൃത്വം നൽകി മുഖ്യ മന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു മഴക്കെടുതിയിൽ കേരളം ദുരിതമനുഭവിക്കുന്ന ഈ സമയത്ത് അവർക്ക് ആശ്ചാസം എത്തി ച്ചുകൊണ്ടാവണം പെരുന്നാൾ ആഘോഷമെന്ന് മുഖ്യമന്ത്രി ആശംസാ സന്ദേ ശത്തിൽ പറഞ്ഞു

മൂന്ന് മത്സരങ്ങളിൽ ഒന്ന് ജയിച്ച ഇന്ത്യ പരമ്പരയിൽ മുന്നിട്ടു നിൽക്കുകയാണ്

ഈ അധ്യയന വർഷം മുതൽ പുതു ക്കിയ നിരക്ക് ഈടാക്കും